ഉറപ്പാക്കുന്ന ജയ് സേഹത് പദ്ധതിക്ക് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിക്കും

തയ്യാറാക്കുന്നതിനായി കഴിഞ്ഞ് ക്ടൂറ്ച്ചുമാസങ്ങളായി സർക്കാർ പ്രയത്നിച്ചു വരികയാണെന്ന് ക്കേന്ദ്ര ് ആരോഗൃമന്ത്രി ഡോ

ഹൈവേകളുടെ നിർമാണം പുരോഗമിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി

മത്സരത്തിൽ ടോസ് നേടിയ ഓസ്ട്രേലിയയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു

വോയ്സ് ജമ്മുകശ്മീരിലെ എല്ലാ ജനങ്ങൾക്കും അഞ്ചുലക്ഷം രൂപവരെ സൌജന്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതാണ് പദ്ധതി എല്ലാ വിഭാഗം ജനങ്ങൾക്കും സാമ്പത്തിക ് പ്രതിസന്ധിയിൽ സുരക്ഷ നൽകുക മികച്ചനിലവാരമുള്ളതും താങ്ങാവുന്നതുമായ അവശ്യ ആരോഗ്യസേവനങ്ങൾ ഉറപ്പാക്കുക എന്നിവ ലക്ഷ്യമിട്ടുള്ളതാണ് സാർവത്രിക ആരോഗ്യ പരിര്ക്ഷ ഉറപ്പാക്കുന്ന പദ്ധതി

എം

വൈ പദ്ധതിയുടെ ആനുകൂല്യം നീട്ടികൊടുക്കുകയാണ്

സേഹത് പദ്ധതി നിലവിൽ വരൂന്നുതോടെ സാർവത്രിക ആരോഗ്യ പരിരക്ഷ നേടുന്ന രാജ്യത്തെ ആദ്യ പ്ലദേശമായി ജമ്മുകശ്മീർ മാറും ന്യൂസ് ഡെസ്ക് ആകാശവാണ് ി

ഒരു ലക്ഷം കോടിയിലേറെരൂപ പദ്ധതിയിലൂടെ ഇതിനകം കർഷകർക്ക് കൈമാറിയതായി പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തെ കർഷകരുടെ കൃഷിക്കായുള്ള മുതൽമുടക്ക് കുറയ്ക്കുന്നതിന് വേണ്ടികേന്ദ്ര സർക്കാർ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങിൽ പറഞ്ഞു കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രതിപക്ഷകക്ഷികൾ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് രാഷ്ട്രീയലാഭത്തിനായി ഉപയോഗിക്കുന്നതായും അദ്ദേഹം വിമർശിച്ചു ആറ് സംസ്ഥാനങ്ങളിലെ കർഷകരുമായും പ്രധാനമന്ത്രി ഇന്നലെ ആശയവിനിമയം നടത്തി

പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നശേഷം കൃഷിക്കുള്ള ബജറ്റ്വിഹിതം ഉയർത്തിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി

വാക്സിൻ നല്കേണ്ടവരുടെ മുൻഗണനാക്രമം നിശ്ചയിക്കുന്നതിനായി കഴിഞ്ഞ് ഏതാനും മാസങ്ങളായി സർക്കാർ പ്രയത്നിച്ചുവരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു

ഗുവാഹത്തിയിൽ രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ അദ്ദേഹം മുഖ്യ അതിഥിയാകും

അസമിലെ ബിജെപി നേതൃത്വവുമായും ആഭ്യന്തരമന്ത്രി കൂടിക്കാഴ്ച നടത്തും

ഇന്ത്യയെ ലോകത്തെ ഏറ്റവും മികച്ച ആഗോള സമ്പദ്ഘടനയാക്കി മാറ്റി പ്രധാനമന്ത്രിയുടെ ആത്മനിർഭർ ഭാരത് എന്ന സ്വപ്നം സാക്ഷാൽക്കരിക്കുന്നതിനെക്കുറിച്ചും കേന്ദ്രമന്ത്രി ആകാശവാണി വാർത്തകൾക്കു നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു നിരവധി സൂക്ഷ്മചെറുകിട ഇടത്തരം സംരംഭങ്ങൾ പുനഃസംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വൃക്തമ്മൂക്കി

പുതുവർഷം മുതൽ രാജ്യത്തെ എല്ലാ വാഹനങ്ങൾക്കും ഫാസ്റ്റടാഗ് നിർബന്ധമാണെന്ന് കേന്ദ്ര കൃതിഗത് മന്ത്രി നിതിൻ ഗഡ്കരി

അമേരിക്ക റഷ്യ ജർമ്മനി ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിൽ കോവിഡ് രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ്

മുംബൈ ദീപ് കമൽ ഫൌണ്ടേഷനാണ് മുംബൈയിലെ വീർ സവർക്കർ ഓഡിറ്റോറിയത്തിൽ ഇന്നലെ ചടങ്ങ് സംഘടിപ്പിച്ചത്

പ്രശ്ന ബാധിത മേഖലകൾ തിരിച്ചറിയുക കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും കുറ്റവാളികളെ കണ്ടെത്തുന്നതിനും രാത്രികാല പട്രോളിംഗ് ഏർപ്പെടുത്തുക തുടങ്ങിയ വിഷയങ്ങളിലാണ് തീരുമാനം കൈക്കൊണ്ടത്

മണ്ഡലപൂജയെ തുടർന്റ് ഈന്ന് നട അടക്കുന്നതോടെ മണ്ഡല മഹോത്സവത്തിന് സമാപനമാകുട്

ബാലൻ ടി

രാമകൃഷ്ണൻ വി

സുനിൽ കുമാർ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചലച്ചിത്ര സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി

ടോസ് നേടിയ ഓസ്ട്രേലിയ ബാറ്റിംഗ് തെരെഞ്ഞെടുക്കുകയായിരുന്നു

ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ എഫ്

ആറ് കളികളിൽ രണ്ട് ജയവും രണ്ട് തോൽവിയും രണ്ട് സമനിലയും വഴങ്ങിയ ചെന്നൈയിൽ എഫ്

അതേസമയം ആറ് മത്സരങ്ങളിൽ ഒരെണ്ണത്തിൽ പോലും ജയിച്ചിട്ടില്ലാത്ത ഈസ്റ്റ് ബംഗാൾ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണ്